ലഡാഖിലെ ഗാൽവാനിൽ നിന്നും ചൈനീസ് സേന പിൻമാറ്റം തുടങ്ങി

പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാതെ കോൺഗ്രസ്് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ബി ജെ പി അദ്ധ്യക്ഷൻ ജെ പി നദ്ദയുടെ വിമർശനം

വിശദാംശങ്ങളുമായി ലിൻസ സ്ടിരാ്ജ് വോയിസ് ദേശീയ സുരക്ഷാ ഉപ്ദദ്ദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാരൃ മന്ത്രി വാങ് ചിയുമായി ഇന്നലെ ടെലഫോണിൽ നടത്തിയ ചർച്ചയിലെ ധാരണയും ചൈനയുടെ പിൻമാറ്റത്തിന് കാരണമായി അതിർത്തിയിൽ നേരത്തെ ഉണ്ടായ സ്ഥിതി പുനസ്ഥാപിക്കാനാണ് ധാരണയായത് ഗാൽവാനിൽ ചൈനയുടെ സൈനൃം സ്ഥാപിച്ച ടെന്റുകളും മറ്റുപകരണങ്ങളും നീക്കം ചെയ്ത് വരുന്നതായി കരസേനാ വൃത്തങ്ങൾ അറിയിച്ചു

നിയന്ത്രണ രേഖ സംബന്ധിച്ച അഭിപ്രായവൃത്യാസങ്ങൾ തർക്കത്തിലേക്ക് പോകരുതെന്നും ധാരണയായി ഇതേതുടർന്നാണ് അതിക്രമിച്ച് കയറിയ സ്ഥലത്ത് നിന്ന് സൈന്യത്തെ പിൻവലിക്കാമെന്ന് ചൈന സമ്മതിച്ചത് അതിർത്തി മേഖലകളിൽ നിന്ന് ഘട്ടം ഘട്ടമായി പിൻവാങ്ങണമെന്നതാണ് മറ്റൊരു ധാരണ

സൈനിക നയതന്ത്ര ചർച്ചകൾ തുടരാനും തീരുമാനമായി ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഒരു യോഗത്തിൽ പോലും കോൺഗ്രസ്് നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുത്തിട്ടില്ലെന്ന് ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ വിമർശിച്ചു രാഹുൽ ഗാന്ധി രാജൃത്തെ സായുധർ സേനയുടെ ധീരതയെ ചോദ്യം ചെയ്യുന്നുവെന്നും അദ്ദേഹൃൃൃ ആ്രോപിച്ചു

ലഡാക്കിലെ ലേയിൽ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മവാർഷിക ദിനാഘോഷ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യഥാർത്ഥ നിയന്ത്രണ രേഖ അതിർത്തിയായി കണക്കാക്കാനാകില്ലെന്നും ഇന്ത്യ അതിർത്തി പങ്കിടുന്നത് ടിബറ്റുമായാണെന്നും അദ്ദേഹം പറഞ്ഞു

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ചടങ്ങ് നടക്കുകയെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു

ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന് ആദരം അർപ്പിച്ചു ഐക്യത്തിനും ദേശീയോദ്ഗ്രഥനത്തിനും വേണ്ടിട് അക്ഷീണം പ്രയത്നിച്ച നേതാവാണ് ശ്യാമപ്രസാദ് മുഖർജിയെന്ന് ശ്രീ

ഇന്ത്യയുടെ വികസനത്തിന് പ്രധാന പങ്കുവഹിച്ച മുഖർജി ദേശീയ ഐകൃത്തിനായി ധീരമായി പ്രയത്നിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്റർ സന്ദേശത്തിൽ കുറിച്ചു

കഴിഞ്ഞ ദിവസം നടന്ന രണ്ട് മരണങ്ങൾ കോവിഡ് മൂലമാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

അതിൽ പലതിലും ഉറവിടം കണ്ടെത്താനായില്ല

കൊവിഡ് പ്രതിരോധത്തിനായി ശക്തമായ പ്രവർത്തനമാണ് ആദൃം മുതൽ നടത്തി വന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

വിശദവിവരങ്ങളുമായി ആക്ടാശവാണി തിരുച്ചിറപ്പള്ളി വാർത്താ വിഭാഗം മേധാവി ഡോട്ട്ക്ക്

സ്ഥാപനങ്ങൾ മെഡിക്കൽ കോളേജുകൾ പരിശോധനാ ലാബുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സഹകരണമാണ് ഇത് സാധ്യമാക്കിയത്

വെന്റിലേറ്ററിന് പകരമല്ല എമർജൻസി ബ്രീതിംഗ് അസിസ്റ്റ് സിസ്റ്റം എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു എന്നാൽ വെന്റിലേറ്റർ ലഭ്യമാകുന്നത് വരെയുള്ള സമയം മണിക്കൂറുകൾ മുതൽ ഏതാനും ദിവസങ്ങൾ വരെ ഇതൊരു പകരം സംവിധാനമായി പ്രവർത്തിക്കും